എസ് എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഐടി മേഖലയുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ കൂടുതൽ നടപടി സ്വീകരിക്കുമെന്നും അതിനാവശ്യമായ വിഹിതം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉയർന്ന മാനവ വിഭവ ശേഷി മികച്ച ഇന്റർനെറ്റ് കണക്ടിവിറ്റി തടസ്സമില്ലാത്ത വൈദ്യുതി ജല ലഭ്യത തുടങ്ങിയവ ഒന്നിച്ച് വരുമ്പോൾ ഐ ടി പാർക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പള്ളിപ്പുറം ടെക്നോസിറ്റിയിലെ കബനി ഐടി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിജ്ഞാനാധിഷ്ഠിത സമൂഹത്തിലേക്ക് സംസ്ഥാനം നടത്തുന്ന യാത്രയിലെ സുപ്രധാന നാഴികക്കല്ലാണ് ടെക്നോസിറ്റിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദ്ദേ പാലക്കാട് ശബരി ആശ്രമത്തിലെ ഗാന്ധിസ്മൃതി മന്ദിര സമുച്ചയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രപിതാവിനെ അപമാനിക്കാനും തമസ്കരിക്കാനും നടത്തുന്ന ശ്രമങ്ങൾക്ക് കേരളത്തിൽ ഇടമുണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിച്ച ശബരി ആശ്രമം മഹാത്മാഗാന്ധി മൂന്നുതവണ സന്ദർശിച്ചിട്ടുണ്ട് ദേദ കഥാപ്രസംഗത്തെ ആധുനികവത്ക്കരിച്ച് ആസ്വാദ്യകരമാക്കിയ അതുല്യ കലാകാരനായിരുന്നു വി സാംബശിവനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

സാംബശിവന്റെ സ്മരണയ്ക്ക് ജന്മനാടായ കൊല്ലം ചവറ തെക്കുംഭാഗം കല്ലുംപുറത്ത് നിർമ്മിച്ച സാംബശിവൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി എ

ദേദ കോവിഡ് രോഗബാധിതരുമായി സമ്പർക്കമുണ്ടായവർക്ക് ക്വാറന്റീൻ നിർബന്ധമാക്കണമെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും കേന്ദ്ര വിദഗ്ദ്ധ സംഘം നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയ കേന്ദ്രസംഘം എറണാകുളം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത്

മൂന്നംഗ സംഘം ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു

ദേദ കോവിഡ് വ്യാപനം വർധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ രോഗനിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ ജി ആർ ഗോകുൽ ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശനുമായി ജില്ലയിലെ സ്ഥിതി വിലയിരുത്തി

ന്യൂസ് ഡസ്ക് ആകാശവാണി ദ്ദേ സംസ്ഥാനത്ത് ബി ജെ പിക്ക് അനുകൂലമായ രാഷ്ട്രീയ മാറ്റത്തിന് ജനങ്ങൾ തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ

സംസ്ഥാനത്ത് ബി

തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പാർട്ടിയുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബി

പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജെ

കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അഴിമതിക്കാര്യത്തിൽ എൽ

എഫിനും യു

എഫി നും ഒരേ നയംതന്നെയാണെന്ന് ബി

പി ദേശീയ അധ്യക്ഷൻ കുറ്റപ്പെടുത്തി

കർണാടക ഉപമുഖ്യമന്ത്രി അശ്വത്ഥ് നാരായണൻ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ദേദ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു

എഫ് വലിയ വിജയം നേടുമെന്ന് കർണാടക പി

സി പ്രസിഡന്റ് ഡി

പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യകേരള യാത്രയുടെ കോഴിക്കോട് ജില്ലയിലെ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുസ്ലിറലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടത് ഭരണത്തിൽ വികസനത്തിന് ശ്രദ്ധേയമായ നടപടിയുണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ കുഞ്ഞാലിക്കുട്ടി പി ജെ ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ദേദ കേരള വികസനം ലിസനിംഗ് എന്ന തുറന്ന സംവാദത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി കോഴിക്കോട്ട് വ്യാപാരികളും തൊഴിലാളി സംഘടനകളും വിവിധ മേഖലയിലെ പ്രതിനിധികളും സംവദിച്ചു ഐശ്വര്യ കേരളയാത്രയുടെ ഭാഗമായിട്ടായിരുന്നു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ദേദ റിസർവ് ബാങ്കിന്റെ ഈ സാമ്പത്തിക വർഷത്തെ അവസാന ദ്വൈമാസ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസിന്റെ അധ്യക്ഷതയിൽ മൂന്ന് ദിവസമായി മുംബൈയിൽ ചേരുന്ന വായ്പാ അവലോകന യോഗത്തിന് ശേഷമാണ് നയം പ്രഖ്യാപിക്കുക

ദ്ദേ ഇന്ത്യ ഇംഗ്ലണ്ട് ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റ് ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ഇന്ന് ആരംഭിക്കും

നാല് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിലെ ആദ്യ രണ്ട് മത്സരങ്ങളാണ് ചെന്നൈയിൽ നടക്കുന്നത് ഇന്നാരംഭിക്കുന്ന മത്സരത്തിൽ കാണികളുണ്ടാകില്ല

കോവിഡ് സൃഷ്ടിച്ച ഒരുവർഷത്തെ ഇടവേളക്ക് ശേഷമാണ് രാജ്യത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം തിരിച്ചെത്തുന്നത് പ്രഥമ ഐ

സി ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ ബർത്ത് ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും കളത്തിലിറങ്ങുന്നത് ജൂണിൽ ലോർഡ്സിൽ നടക്കുന്ന ഫൈനലിലേക്ക് ന്യൂസിലന്റ് ഇതിനകം യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ വൻ ജയം നേടിയാലേ ഇംഗ്ലണ്ടിന് ഫൈനലിൽ എത്താനാവൂ

പരമ്പര സമനിലയിലായാൽ ഓസ്ട്രേലിയ ഫൈനലിൽ കളിക്കും

എൽ ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്

ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി

സി ചെന്നൈയിൻ എഫ് സി യെ നേരിടും

ഓൺലൈനായി ഒരാൾക്ക് ഒരു മേഖലയിൽ മാത്രമേ രജിസ്ട്രേഷൻ അനുവദിക്കൂ

പ്രതിനിധികൾ ടി വി പ്രൊഫഷനുകൾ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിഭാഗങ്ങളിലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ

രാജ്യാന്തര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ ഹോമേജ് ലോകസിനിമ തുടങ്ങി എട്ട് വിഭാഗങ്ങളിലായി അമ്പതോളം ചിത്രങ്ങളാണ് നാല് മേഖലകളിലും പ്രദർശിപ്പിക്കുന്നത് ന്യൂസ് ഡസ്ക് ആകാശവാണി ദേദ സ്ത്രീസുരക്ഷ അവകാശങ്ങൾ എന്നിവ സംബന്ധിച്ച് ജന പ്രതിനിധികൾക്ക് ശരിയായ അവബോധം ഉണ്ടാകുന്നത് സ്ത്രീ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണവും നീതി ലഭ്യതയും അനായാസമാക്കുമെന്ന് മന്ത്രി കെ

സ്ത്രീപക്ഷ നിയമങ്ങളും വർത്തമാനകാല സമൂഹവും എന്ന വിഷയത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കൊല്ലം ജില്ലയിലെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

ദേദ ഇന്ധന വില ഇന്നും വർധിച്ചു

ദേദ നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി പരീക്ഷ കൂടാതെ എട്ട് ലക്ഷം പോസ്റ്റുകളിലേക്ക് നേരിട്ട് നിയമനം നടത്തുന്നുവെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു നാഷണൽ റിക്രൂട്ട്മെന്റ് ഏജൻസി ഇതുവരെ ഇത്തരം പരസ്യങ്ങൾ നൽകിയിട്ടില്ലെന്ന് പിഐബി വ്യക്തമാക്കി ദേദ ഏലൂരിലെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിൽ നടന്ന ഹിതപരിശോധനയിൽ മൂന്ന് സംഘടനകൾക്ക് അംഗീകാരം ലഭിച്ചു നാല് സംഘടനകളാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് ദേദ സംസ്ഥാന ഗവൺമെന്റിന്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും പ്രചരിപ്പിക്കുന്നതിന് തൃശൂർ ജില്ലയിൽ ജില്ലാ ഇൻഫർമേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ അഞ്ചിടങ്ങളിൽ ഫോട്ടോ എക്സിബിഷൻ നടത്തും